ഡൽഹിയിലെ സൈനിക ആശുപത്രിയിലായിരുന്നു അന്ത്യം ഒരു റിപ്പോർട്ട്

അഞ്ച് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയസപര്യയിൽ കേന്ദ്ര ധനകാര്യ മന്ത്രിസ്ഥാനമുൾപ്പടെ ഒട്ടേറെ പ്രധാന മന്ത്രാലയങ്ങളുടെ ചുമതല അദ്ദേഹം വഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ മുഖർജി ബംഗാളിൽ നിന്നുള്ള അതികായ നായാണ് അറിയപ്പെടുന്നത് പശ്ചിമ ബംഗാളിലെ ബിർഭും ജില്ലയിലെ മിരാത്തി എന്ന ചെറിയ ഗ്രാമത്തിൽ സ്വാതന്ത്ര്യസമരസേനാനി കളായ കമദ കിങ്കർ മുഖർജിയുടെയും രാജലക്ഷ്മിയുടെയും മകനായി ജനിച്ചു പിതാവ് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടു ത്ത് നിരവധി തവണ ജയിലിൽ പോവുക്രയും യാതനകൾ അനു ഭവിക്കുകയും ചെയ്യുന്നത് കണ്ടാണ്ട് അദ്ദേഹം വളർന്നത് കൊൽക്കത്ത സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിലും രാഷ്ട്രതന്ത്രത്തിലും ബിരുദാനത്തര ബിരുദവും നിയമത്തിൽ ബിരുദവും നേടി തുടർന്ന് കോളേജ് അദ്ധ്യാപകനായും പത്രപ്രവർ ത്തകനുമായി ഔദ്യോഗികൃ ്ജീവിതം ആരംഭിച്ചു

പദ്മവിഭൂ ഷണും ഭാരത് രത്നയും നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചി ട്ടുണ്ട്

ഒരു യുഗത്തിന്റെ അന്ത്യമാണ് സംഭവിച്ചിരിക്കു ന്നതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു ഒരു ജ്ഞാനിയുടെ മനോഭാവത്തോടെയാണ് അദ്ദേഹം ഭാരതമാതാവിനെ സേവിച്ചതെന്നും ശ്രീ

മുതിർന്ന രാജ്യതന്ത്രജ്ഞനെയാണ് രാജ്യത്തിനു നഷ്ടമായതെന്ന് ഉപരാഷ്ട്രപതി എം

രാജ്യത്തിന്റെ വികസനപാതയിൽ മായാത്ത മുദ്ര പതിപ്പിച്ച വ്യക്തി യാണ് പ്രണബ് മുഖർജിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു എല്ലാ വിഭാഗം ജനങ്ങളും ആരാധിച്ചിരുന്ന വൃക്തിതവും മറ്റാരെക്കാളും മികച്ച ജ്ഞാനിയുമായിരുന്നു പ്രണബ് എന്നും അനുശോചന സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു

വോയിസ് ഇന്നലെയും മിനിഞ്ഞാന്നും ചൈനീസ്റ് സേന നടത്തിയ പ്രകോപനപരമായ നീക്കങ്ങൾ സംബ്രസ്ട്രിച്ച് ചർച്ച ചെയ്യാനാണ് കൂടിക്കാഴ്ച്ച കിഴക്കൻ ലഡാക്കിൽ ത്ർസ്ഥിതി നിലനിർത്തുന്ന തിനായി സൈനിക നയതന്ത്ര് തലങ്ങളിൽ ഇരു രാജ്യങ്ങളും കൈക്കൊണ്ട ധാരണ ചൈന്റീസ് സേന ലംഘിച്ചതായി ഇന്ത്യൻ സൈന്യം അറിയിച്ചു

പാങ് ഗോങ് തടാകത്തിന്റെ ് പടിഞ്ഞാറൻ തീരത്തെ ഈ നീക്കം മുൻകൂട്ടി മനസ്സിലാക്കി തടയാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു

സന്ധി സംഭാഷണത്തിലൂടെ ശാന്തിയും സമാധാനവും നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അതേ സമയം രാജ്യാതിർത്തി സംരക്ഷിക്കുന്നതിൽ പിട്ടു വീഴ്ചയി ല്ലെന്നും ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചും സാമൂഹിക അകലം ഉറപ്പൂവരുത്തിയും ലളിതമായാണ് മലയാളികൾ ഇത്തവണ തിരുവോണം ആഘോഷിച്ചത് കുടുംബാംഗങ്ങളെല്ലാം ഒത്തു ചേർന്ന് പൂക്കളങ്ങളൊരുക്കിയും സദ്യവട്ടങ്ങൾ തയ്യാറാക്കിയും മാവേ ലിയെ വരവേറ്റു ഐശ്വരൃത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ ദിനത്തിൽ മലയാളിയുടെ മനസിൽ ഗൃഹാതുരമായ ഒരു പിടി ഓർമ്മകൾ ബാക്കി വച്ചാണ് തിരുവോണം വിട വാങ്ങുന്നത്

ഇന്ത്യയുടെ സമ്പന്നമായ സാസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമാണ് ഓണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു ഓണാഘോഷ വേളയിൽ രാജ്യത്ത് സമാധാനത്തിന്റേയും പുരോഗതിയുടേയും സന്തോഷത്തിന്റെയും പുതിയ യുഗം തുറക്കട്ടെയെന്ന് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആശംസിച്ചു ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓണാശംസകൾ നേർന്നു ഒരുമയുടെ ആഘോഷമായ ഓണം അദ്ധാനിക്കുന്ന നമ്മുടെ കർഷകരോട്ടൂള്ള നന്ദി പ്രകടനം കൂടിയാണെന്ന് ശ്രീ മോദി ടിറ്റർ സന്ദ്രേശ്ത്തീൽ അറിയിച്ചു

പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം തടവ് ശിക്ഷ ലഭിക്കും മൂന്നു വർഷത്തേക്ക് നിയമ പ്രാക്ടീസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും

ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ധ്യക്ഷത വഹിക്കും കേന്ദ്ര സഹമന്ത്രി ജനറൽ വി കെ സിംഗ് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ സംസ്ഥാന മന്ത്രിമാർ എംപിമാർ തുടങ്ങിയവർ പങ്കെടുക്കും

ഏഴാം തീയതി മുതൽ ഘട്ടംഘട്ടമായി മെട്രോ റെയിൽ പ്രവർത്തനമാരംഭിക്കും

വിനോദ കായിക സാംസ്കാരിക പരിപാടികളും പരമാവധി നുറു പേരെ പങ്കെടുപ്പിച്ച് നടത്താം

തിരുവനന്തപുരം ജില്ലയിലാണ് രോഗബാധിതരുടെ എണ്ണം ഇന്നും കൂടുതൽ

ആഗോളതലത്തിലെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണിത്

ഹക്ക് മുഹമ്മദ് മിഥിലാജ് എന്നിവരെയാണ് ഇന്നലെ രാത്രി ബൈക്കിലെത്തിയ സംഘം കൊലപ്പെടുത്തിയത് മിഥിലാജ് സംഭവസ്ഥലത്തും ഹക് മുഹമ്മദ് ആശുപത്രിയിലുമാണ് മരിച്ചത്

ജെ

രാജീവ് ഗാന്ധി ഫൌണ്ടേഷന് സംഭാവന ലഭിച്ചത്രിനു് പിന്നിൽ ഗൂഢാലോചനയാ ണെന്നും ബി ജെ

എന്നാൽ ചരക്ക് നീക്കത്തിനും ഡിജിസിഎ യുടെ പ്രത്യേക അനുമതി ഉള്ള വിമാനങ്ങളുടെ സർവീസിനും നിരോധനം ബാധകമല്ലെന്നും ഇന്ന് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു

വിമാനങ്ങളുടെയും വിമാനത്താവള ങ്ങളുടെയും നടത്തിപ്പ് സർക്കാരിനായിരിക്കില്ലെന്നും ശ്രീ

എന്നാൽ ഒന്ന് മുതൽ ബസ് സർവീസുകൾ ആരംഭിക്കാം ഏഴിന് ചെന്നൈയിൽ മെട്രോ തീവണ്ടി സർവീസുകൾ ആരംഭിക്കും

വായ്പാ മൊറട്ടോറിയം നീട്ടണമെന്ന് കേരള സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു

ജസ്റ്റിസ് യു യു ലളിതാണ് കേസ് പഴയ ബെഞ്ചിലേക്ക് തിരിച്ചയച്ചത് കേസ് എൻ വി രമണയുടെ ബെഞ്ചിൽ പരിഗണിക്കാനായി മാറ്റി